വിലയിരുത്തി

രാജമല പെട്ടിമുടി മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് ദ്ദ്

പ്രതിസന്ധിക്ക് വിരാമം

ലബനൻ പ്രധാനമന്ത്രി ഹസൻ ഡയാബ് രാജിവച്ചു

മുഖ്യമന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിലാണ് രോഗപ്രതിരോധ നടപടികൾ അവലോകനം ചെയ്തത് മുഖാവരണം ധരിക്കുക കൈകഴുകുക വൃക്തി ശുചിത്വം പാലിക്കുക ശാരീരിക അകലം പാലിക്കുക തുടങ്ങിയ മുൻകരുതലുകളും ആളുകൾ പാലിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം നിർദേശിച്ചു ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർ നിർബന്ധമായും കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്രായമായവർക്കും ഗർഭിണികൾക്കും രോഗാവസ്ഥയുള്ളവർക്കും പ്രത്യേക ശ്രദ്ധ നൽക ണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ശ്രമ മെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്ത് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ഏഴ് ലക്ഷത്തിലധികം കോവിഡ് പരിശോധനകൾ നടത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

ചികിത്സയിലുണ്ടായിരുന്ന എട്ട് കോവിഡ് ബാധിതരാണ് തീപിടുത്തത്തിൽ മരിച്ചത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജുഡീഷ്യൽ അന്വേഷണത്തിന് നേതൃത്വം നൽകും തീവ്ര പരിചരണ വിഭാഗത്തിലെ ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രഥമ നിഗമനം സംഭവത്തിൽ എത്രയും വേഗം പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി പ്രദീപ് സിംഗ് ജഡേജ പോലീസിനോട് ആവശ്യപ്പെട്ടു

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആശുപത്രി യിലെത്തി ശ്രീ പ്രണബിന്റെ വിവരങ്ങൾ ആരാഞ്ഞു

മുഖാവരണം ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാർഗങ്ങൾ പ്രചരിപ്പിക്കാൻ ഐജി നേതൃത്വം നൽകും

ഡൽഹിയിലെ ലേഡി ഹർദിംഗ് മെഡിക്കൽകോളേജിലെ നാഡീശാസ്ത്ര വിഭാഗമേധാവിയായ ഡോ രജിന്ദർ കെ ധമിജ ആകാശവാണി വാർത്തകളോട് പറഞ്ഞതാണിക്കാര്യം

എഫ് പോലീസ് അഗ്നിശമനസേന എന്നിവയിട്ടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും സണ്ണിദ്ധ്യസംഘടനകളുടെയും സഹകരണത്തോടെയാണ് തെരച്ചിൽ നടന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു

പലയിടങ്ങളിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

ഇടുക്കിയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്നും മഴ കുറഞ്ഞ സാഹചര്യത്തിൽ നീരൊഴുക്കു കുറഞ്ഞിട്ടുണ്ടെന്നും ഡാം തുറക്കേണ്ടി വന്നാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കൈക്കൊണ്ടിട്ടുള്ളതായും ഇടുക്കി ജില്ലാ കളക്ടർ എച്ച്

മലപ്പുറം ചാലിയാറിലും പോഷകനദികളിലും ജലനിരപ്പ് സാധാരണ നിലയിലെത്തി

സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോൺഗ്രസ് നേതൃത്വവുമായി ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എം എൽ

പാർട്ടിയുമായും സംസ്ഥാന സർക്കാരുമായും തനിക്കും തന്റെ അനുയായികൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചതെന്ന് സച്ചിൻ പൈലറ്റ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

റിയ അവരുടെ സഹോദരൻ ഷൊവിക് അച്ഛൻ ഇന്ദ്രജിത് ചക്രബർത്തി റിയയുടെ മാനേജർ ശ്രുതി മോദി രജപുത്തിന്റെ സുഹൃത്ത് സിദ്ധാർത്ഥ് പിത്താനി എന്നിവരെയാണ് ഇ ഡി ചോദ്യം ചെയ്തത്

മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ രാജിവച്ചതിനു തൊട്ടുപിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജി രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പരിഷ്ക്കരണത്തിനുള്ള പോരാട്ടത്തിൽ പങ്കുചേരുമെന്ന് അദ്ദേഹം ടെലിവിഷനിലൂടെ അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ബെയ്റൂട്ടിലുണ്ടായ വൻ സ്ഫോടനത്തെ ിരുടർന്ന് രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ൃശ്ക്ത്മായിരുന്നു

എല്ലാവർക്കും വീട് അടൽ പുനരുജ്ജീവന പദ്ധതി സ്മാർട്ട് സിറ്റി തുടങ്ങി നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്കായി കൊണ്ടുവന്നതെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ ഡോ രാജീവ് കുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ഇന്ത്യൻ റവന്യൂ സർവ്വീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം